ചൈന അയൽരാജ്യങ്ങളിൽ കൂട്ന്നുക്യറാൻ ശ്രമിക്കുകയാണെന്ന് യു

സ്വദേശിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ചാല കരിമഠം മേഖലകളിൽ റാൻഡം ആന്റിജൻ ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ചതായും കളക്ടർ

ഇന്നലെ ആരംഭിച്ച രണ്ട് ദിവസത്തെ സമ്മേളനം യു

മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുക എന്നതാണ് ഈ വർഷത്തെ ആശയ സമ്മേളനത്തിന്റെ പ്രിമേയം കോവിഡാനന്തര ലോകത്തിൽ ഇന്ത്യ അമേരിക്ക് സ്ഹകരണത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി സംസാരിക്കും

എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക് പോംപിയോ

ചൈനയടക്കം എല്ലാ രാജ്യങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും ധാരണകളും പാലിക്കാൻ ഒരുമിച്ച് പ്രയത്നിക്കണം കോവിഡ് മഹാമാരിയുടെ ആദൃ കാല ലക്ഷണങ്ങളും വിവരങ്ങളും മറച്ചുപിടിക്കുന്നതിലാണ് ചൈനയ്ക്ക് വൃഗ്രത തങ്ങളുടെ താല്പരൃ ങ്ങൾ സംരക്ഷിക്കാൻ കോവിഡ് പ്രതിസന്ധിയെ ചൈന ഉപയോഗി ക്കുകയാണെന്നും മൈക് പോംപിയോ പറഞ്ഞു

ഇത് വലിയ മാറ്റം കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

മൂന്ന് പാളികളുള്ള തുണി മാസ്ക് പ്രയോജനകരമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾസലാം

ഇത് സ്വന്തം ചെലവിൽ ആയിരിക്കണം വിമാനയാത്രക്കാർക്കായി ഡൽഹി വിമാനത്താവളം പുറത്തിറക്കിയ പുതിയ മാർഗ്ഗുനിർദ്ദേശ ങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്

വാസ്കിൻ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്നും ഈ യാത്രയിൽ രാജ്യം മികച്ച നിലയിലെത്തിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധൃമങ്ങളോട് പറഞ്ഞു

കൊല്ലം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് പച്ചക്കാട് സ്വദേശിയും കണ്ണൂർ വിളക്കോട്ടൂർ സ്വദേശിയും കോഴിക്കോട് പള്ളിക്കണ്ടി സ്വദേശിയും കൊല്ലത്ത് കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശിനിയുമാണ് മരിച്ചത്

ഈ വിദ്യാർത്ഥി യുടെ അമ്മയ്ക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാല കരിമഠം മേഖലകളിൽ റാൻഡം ആന്റിജൻ ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ചതായും പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരുന്നതായും കളക്ടർ അറിയിച്ചു ക്രിട്ടിക്കൽ കണ്ടെയിൻമെന്റ് സോണുകളിലെ കച്ചവട ക്കാർക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ മൊത്തവിതരണ ക്കാരിൽ നിന്നും സ്റ്റോക്ക് സ്വീകരിക്കാം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

കൂടുതൽ വൃദ്ദ്ങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽഅലീമുത്ത്

ചൊവ്വാഴ്ച പൊന്നാനി മുറിഞ്ഞഴിയിലെ രണ്ട് വീടുകൾ കടലെടുത്തു ആലപ്പുഴയുടെ തീരദേശത്തും എറണാകുളം ചെല്ലാനത്തും കടൽക്ഷോഭം രൂക്ഷ മാണ്

എൽ ക്രിക്കറ്റ് യു എ ഇ യിൽ നടത്താൻ ബി സി

ഐ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും

അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഗവേണിംഗ് കൌൺസിൽ വിഷയം ചർച്ച ചെയ്യും രാജ്യത്ത് കോവിഡ് വ്യാപനം തുടരുന്നതിനാൽ മത്സരങ്ങൾ നടത്താൻ ഇപ്പോൾ കഴിയില്ല എന്നാൽ യുഎഇ യും ശ്രീലങ്കയും ഐപിഎല്ലിന് വേദിയാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു